ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും മാവൂർ റോഡിൽ കെ എസ്

സി ബസ് ടെർമിനലിന്റെ മൂന്നാം നിലയിലാണ് ഓഫീസ് കോർപറേഷനെ മൂന്ന് സ്വതന്ത്ര മേഖലകളാക്കിയതോടെ മലബാർ മേഖലയിലെ മുഴുവൻ സർവ്വീസുകളുടെയും ഏകോപനവും ഭരണനിർവ്വ ഹണവും ഇനി കോഴിക്കോട് കേന്ദ്രീകരിച്ചായിരിക്കും കോഴിക്കോടിനു പുറമെ വയനാട് കണ്ണൂർ കാസർകോട് മലപ്പുറം പാലക്കാട് ജില്ലകളാണ് ഉത്തരമേഖലയുടെ പരിധിയിൽ വരുന്നത്

ചെന്നൈയിൽ ചികിത്സയിൽ കഴിയുന്ന തമിഴ്നാട് മുൻ മുഖ്യ മന്ത്രി എം കരുണാനിധിയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയു ണ്ടെന്ന് കാവേരി ആശുപത്രിയുടെ മെഡിക്കൽ ബുള്ളറ്റിൻ അറിയിച്ചു

ഇതിന്റെ ഭാഗമായി പൊതുജനങ്ങളെയും ഉദ്യോഗസ്ഥ രെയും ജനപ്രതിനിധികളെയും ഉൾപ്പെടുത്തി അഴിമതി രഹിത ജന സൌഹൃദ സദ്ഭരണ ആശയങ്ങൾക്ക് പ്രാധാന്യം നൽകി ബോധവൽക്ക രണ ക്താസുകളും പൊതുപരിപാടികളും സംഘടിപ്പിക്കും